ഏർപ്പെടുത്താനുള്ള ശുപാർശ അടക്കം പരിഗണിക്കാൻ ജി

കേരള വനിതാ ടീം ഫൈനലിൽ പുരുഷ ടീം പുറത്ത്

ലോക്സഭ നേരത്തെ ബിൽ പാസാക്കിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ബിൽ തിടുക്കത്തിലാണ് കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷ ആരോപണം തള്ളിയ അദ്ദേഹം ഇക്കാര്യം ദീർഘനാളായി ഗവൺമെന്റിന്റെ മുന്നിലുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി ഭരണഘടന യിൽ നിർദ്ദിഷ്ട മാറ്റങ്ങൾ വരുത്താനായാൽ ബിൽ സുപ്രീംകോടതി ക്ക് തള്ളാനാകില്ലെന്നും അദ്ദേഹം മറുപടി നൽകി എന്നാൽ ബിൽ വേണ്ടത്ര തയാറെടുപ്പില്ലാതെ തിടുക്കത്തിൽ കൊണ്ടുവരികയായിരുന്നുവെന്ന് ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ ആരോപിച്ചു ബില്ലിനെ അനുകൂലിച്ച് സംസാരിച്ച സമാജ് വാദി പാർട്ടി നേതാവ് രാം ഗ്ളോപാൽ ്വർമ ഒബിസി പട്ടികവിഭാഗങ്ങളുടെ സംവരണ്ട്ടോത്ത് വർധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു

സാമ്പത്തിക സംവരണ ബിൽ സെലിക്ട് കമ്മിറ്റിക്ക് പിടണമെന്ന എ

കെ യുടെയും ഇടതുപാർട്ടികളുടേയും പ്രമേയം നിരാകരിച്ചു

നിലവിൽ നൽകി വരുന്ന സംവരണത്തിൽ കുറവ് വരുത്താ തെയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവര ണം ഏർപ്പെടുത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ചൂണ്ടി ക്കാട്ടി

ബിൽ പാസാക്കിയത് സാമൂഹ്യ നീതിയുടെ വിജയമാണെന്നുംരാജ്യപരിവർത്തനത്തിന് ഇത് സഹായകരമാകുകയുംയുവജന ശാക്തീകരണത്തിനായുളള വലിയ വേദിയായും ഇതിനെ കാണാമെന്നും ശ്രീ നരേന്ദ്ര മോദി ടിറ്ററിൽ കുറിച്ചു

ഭരണഘടനാ ശിൽപ്പികൾക്കുംസ്വാതന്ത്ര്യസമര പോരാളികൾക്കുമുളള സമർപ്പണമായി ഇതിനെ കണക്കാക്കാട്ട് എന്നും ശ്രീ മോദി പറഞ്ഞു സഭ ഊർജ്ജസ്വലമായ്ക്ക് ഒരു ചർച്ചയ്ക്ക് വേദിയായതായും ഉൾക്കാഴ്ച്ചു നിര്ഞ്ഞ അഭിപ്രായങ്ങൾ വിവിധ അംഗങ്ങൾ രേഖപ്പെടുത്തിയിൽയും പ്രധാനമന്ത്രി പറഞ്ഞു

സമ്മേളന കാലയളവിൽ അഞ്ച് ബില്ലുകൾ പരിഗണിക്കുകയുംനാലു ബില്ലുകൾ പാസാക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു

അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

ബോബ്ഡെ എൻ

രമണ യു

ലളിത് ഡി വൈ ചന്ദ്രചൂഡ് എന്നിവർ അംഗങ്ങളായിരിക്കും

പ്രളയക്കെടുതി നേരിടുന്നതിനായി കേരളത്തിന് രണ്ട് വർഷത്തേക്ക് സെസ് ഏർപ്പെടുത്താമെന്ന് ബിഹാർ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സുശിൽമോദിയുടെ അദ്ധ്യക്ഷതയിലുള്ള മന്ത്രിതല സമിത്പ് ശുപാർശ ചെയ്തിട്ടുണ്ട് ഒരു ശതമാനം സെസ് രണ്ട് വർഷത്തേക്ക് ഏർപ്പെടുത്താനാണ് ശുപാർശ ഏതെല്ലാം ചരക്കുകൾക്കും സേവനങ്ങൾക്കുമാണ് സെസ് ഏർപ്പെടുത്തുന്നതെന്ന് കേരളം തീരുമാനിക്കും

സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ജി

ടി നിരക്കിൽ ഇളവ് അനുവദിക്കണമെന്ന കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ശിവ് പ്രതാപ് ശുക്കയുടെ നേതൃത്വത്തിലുള്ള സമിതി നിർദ്ദേശവും ഇന്ന് യോഗത്തിന്റെ പരിഗണനയിൽ വരും

ബംഗാളിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് വനിതകളുടെ ഫൈനൽ പ്രവേശനം വ്യാഴാഴ്ച നടക്കുന്ന ഫൈനലിൽ റെയിൽവേസാണ് കേരളത്തിന് എതിരാളി

മേളയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആയിരം കായികതാരങ്ങൾക്ക് അടുത്ത എട്ട് വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ സിങ് റാത്തോർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

കായിക്കുമേളയ്ക്കെത്തിയ എല്ലാ യുവതാരങ്ങൾക്കും പ്രിധാനമന്ത്രി നരേന്ദ്രമോദി വിജയാശംസകൾ നേർന്നു കായികരംഗത്തെ മുന്നേറ്റം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ലഭിക്കുന്ന അവസരമാണിതെന്ന് പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

ഗ്രൂപ്പ് എ യിൽ ആതിഥേയരായ യു എ

ഉഭയകക്ഷി സംബന്ധമായ ചർച്ചകളും രാജ്യവികസനം സംബന്ധിച്ച കാഴ്ചപ്പാട്ടൂക്കിളും ചർച്ച ചെയ്തതായി വിദേശകാര്യ വക്താവ് രൂപീഷ്കുമാർ പറഞ്ഞു മംഗോളിയൻ വിദേശകാര്യമന്ത്രീയുമായും സുഷമസ്വരാജ് കൂടിക്കാഴ്ച നടത്തി

പി സൌമിത്ര ഖാൻ ബിജെപിയിൽ ചേർന്നു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രസാദിന്റെ സാന്നിദ്ധൃത്തിൽ ന്യൂഡൽഹിയിൽ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇവർ പാർട്ടി വിട്ടത്

പി അനുപം ഹസ്റയും പാർട്ടി വിടുമെന്ന് സൂചന നൽകി തുടർന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് ഇരുവരേയും പുറത്താക്കിയതായി തൃണമൂൽ കോൺഗ്രസ്സ് അറിയിച്ചു

കച്ചിലെ ജഖാഊ തുറമുഖത്തിന് അടുത്ത് അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപത്തു നിന്നാണ് ഇവരെ പിടികൂടിയത്

കൊല്ലത്ത് രണ്ട് പരിപാടികളിൽ പങ്കെടുത്ത ശേഷം അന്നുതന്നെ മടങ്ങും

ഉവെകിട്ട് അഞ്ചിന് ഒഡീഷയിൽ നിന്ന് തിരുവനന്തഹുരൽ വിമാനത്താവളത്തിലെത്തുന്നു പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കൊല്ലത്തെത്തും

ജെ

അന്തരിച്ച എം

എ ഹരിചന്ദ് മിദ്ധയുടെ മകൻ കൃഷ്ണ മിദ്ധയാണ് ബി ജെ പിയുടെ സ്ഥാനാർഥികോൺഗ്രസ് വക്താവ് കൂടിയായ രൺദീപ് സുർജേവാലയാണ് ക്ടോൺഗ്രസിനായി മത്സരിക്കുന്നത്

പകരം ജൂനിയർ ടീമിന്റെ പരിശീലന ചുമതല ഏറ്റെടുക്കാൻ നിർദേശിച്ചിട്ടുണ്ട് ലോകകപ്പ് ഹോക്കിയിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് ഹരേന്ദ്ര സിങ്ങിനെ പുറത്താക്കിയത്

ലോകസഭയിൽ ചോദൃത്തിന് മറുപടിയായാണ് കേന്ദ്രമന്ത്രി ഇക്കാരൃം അറിയിച്ചത്